മുൻകൂട്ടിയുള്ള ഓൺലൈൻ രജിസ്റ്റ്ട്രേഷൻ വഴി മാത്രമായിരിക്കുമെന്ന് ആരോഗ്ലൂവ്കുപ്പ്

പുതിയ കോവിഡ് ക്സുകൾ റിപ്പോർട്ട് ചെയ്തു

സംസ്ഥാനത്ത് വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ വൻ ന് ജനസാന്നിദ്ധൃം തിരക്ക് നിയന്ത്രണ വിധേയമെന്ന് അധികൃതർ പൂര വിളംബരം കഴിഞ്ഞു

നാളെ തൃശൂർ പൂരം

രാജസ്ഥാൻ റോയൽസ് പോരാട്ടം

പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ പുതിയ മാർഗ്ഗനിർദേശപ്രകാരമാണിത് വാക്സിൻ ക്ഷാമമുള്ളതിനാൽ സ്പോട്ട് രജിസ്ട്രേഷൻ ഒഴിവാക്കിയിട്ടുണ്ട് അതാത് വാക്സിനേഷൻ കേന്ദ്രങ്ങളിലെ കോവിഷീൽഡിന്റേയും കോവാക്സിന്റേയും ലഭ്യത സംബന്ധിച്ച് പൊതുജനങ്ങളെ അറിയിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു

ഈ സാഹചര്യത്തിൽ മെഗാ വാക്സിനേഷൻ ക്യാമ്പുകളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ സ്പോട്ട് രജിസ്ട്രേഷൻ ഒഴിവാക്കിയ വിവരം അറിയാതെ എത്തിയവരും അധികൃതരുമായി വാക്കേറ്റമുണ്ടായതായി റിപ്പോർട്ട്

സംസ്ഥാനത്തെ വാക്സിൻ ദൌർലഭ്യം സംബന്ധിച്ച് കേന്ദ്രത്തിന് കത്ത് നൽകിയിട്ടുണ്ടെന്നും അതിൽ രാഷ്ട്രീയമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ പൊതുവായ ആവശ്യത്തോട് കേന്ദ്ര സർക്കാർ പ്രതികരിക്കുമെന്നാണ് പ്രതീക്ഷ രണ്ടാം തരംഗത്തിൽ കോവിഡ് വ്യാപനം രക്ഷമായി തുടരുമ്പോൾ വാക്സീൻ വില വർധിപ്പിച്ച് സംസ്ഥാനങ്ങളെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളി വിടരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു

സി കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നിയും ജനദ്രോഹമാണെന്ന് കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പ്ള്ളി രാമചന്ദ്രൻ കോവിഡ് രണ്ടാംതരംഗം തീവ്രതയോട്ട്ട രാജ്യമാകെ വ്യാപിക്കുമ്പോൾ പരമാവധി വാക്സിൻ ജന്ങ്ങളിലെത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് എന്നാൽ സംസ്ഥാനങ്ങൾക്ക് താങ്ങാനാവാത്ത സാമ്പത്തിക ബാധ്യത സമ്മാനിക്കുന്നതാണ് പുതിയ വാക്സിൻ നയമെന്നും അദ്ദേഹം പറഞ്ഞു

വാക്സിൻ വിതരണ കേന്ദ്രങ്ങൾ സാമൂഹ്യവ്യാപന ഇടങ്ങളാകുന്ന സ്ഥിതിയുള്ളതിനാൽ ലഭ്യമായ വാക്സിന്റെ അളവനുസരിച്ച് വേണം ഗുണഭോക്താക്കളെ നിശ്ചയിക്കാനെന്നും അടുത്ത നാലുദിവസത്തിനകം ആറരലക്ഷം ഡോസ് വാക്സിൻ കൂടി കേരളത്തിലെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു

കോവിഡ് നിയന്ത്രണങ്ങളോടെ നാളെ തൃശൂർ പൂരം

ജില്ലയിലെ നാല് മേഖലകളിലായി ഇന്ന് രണ്ടര ലക്ഷം വാക്സിൻ എത്തിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്

തൃശ്ശൂർ പൂരം മേളത്തിനെത്തിയ രണ്ട് പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരെ ഐസൊലേഷനിലാക്കി കൂടുതൽ പരിശോധന നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു

അതേസമയം ഇനിയുള്ള രണ്ട് ഘട്ടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം സംസ്ഥാനത്ത് ഊർജ്ജിതമാണ് എല്ലാ മുന്നണികളുടെയും മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമായുണ്ട്

കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച് ലോകനേതാക്കൾ തങ്ങളുടെ അഭിപ്രായങ്ങൾ ഉച്ചകോടിയിൽ പങ്കുവയ്ക്കും നവംബറിൽ നടക്കുന്ന ഐകൃരാഷ്ട്ര സഭയുടെ കാലാവസ്ഥാ വൃതിയാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ഉച്ചകോടി നടത്തുന്നത് പത്തനംതിട്ട ഇൻട്രോ തിരുവാഭരണ പാതയിലെ കൈയേറ്റം ഒഴിപ്പിക്കുന്നതിന് അടിയന്തിര നടപടികൾ സ്വീകരിക്കാൻ പത്തനംതിട്ട ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി

ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മകനും മാധ്യമപ്രവർത്തകനുമായ ആശിഷ് യെച്ചൂരി കോവിഡ് ബാധിച്ച് മരണമടഞ്ഞു

ഡൽഹിയിലെ ഗുഡ്ഗാവിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആശിഷ്

പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി

തിരുവനന്തപുരത്ത് നിന്നാണ് അറസ്റ്റിലായുത്

ബിനീഷിന്റെ വാദങ്ങളെ എതിർത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇന്ന് തടസ്സവാദം സമർപ്പിക്കും കഴിഞ്ഞ രണ്ട് തവണയും സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയിരുന്നു നിലവിൽ പരപ്പന അഗ്രഹാര ജയിലിലാണ് ബിനീഷ് റിമാന്റിൽ കഴിയുന്നത്

എ കൂട്ടപ്പരിശോധനയ്ക്കെതിരെ കേരള സർക്കാർ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ കെ

കൂട്ടപരിശോധന അശാസ്ത്രീയമെന്നും ലാബ് സൌകര്യം വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സംഘടനയുടെ പ്രതിഷേധം ഫലം വൈകുന്നത് പ്രതിസന്ധിയുണ്ടാകുമെന്നും സംഘടന പറയുന്നു

ജയിൽ കോമ്പൌണ്ടിലെ ചപ്പാത്തി കൌണ്ടറിൽ നിന്നാണ് പണം പോയതെന്ന് പോലീസ് പറഞ്ഞു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്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

നമ്മുടെ ഭൂമില്യ ്വീണ്ടെടുക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം ഭൂമിയെ കൂടുതൽ വൃത്തിയുള്ളതും സുസ്ഥിരവുമാക്കാൻ ജ്യ്നങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് ഐക്യരാഷ്ട്ര സഭാ സ്ക്രെട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ടിറ്ററിൽ കുറിച്ചു